ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശിനിയാണ് മരിച്ചത്

സംസ്ഥാനത്ത് എസ്

പരീക്ഷകൾ ഇന്ന് പുനഃരാരംഭിക്കും

വർധിച്ചതായി കേന്ദ്ര സർക്കാർ

ആയിരത്തിലധികം ഓൺലൈൻ സമ്മേളനങ്ങളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വലിയ സംസ്ഥാനങ്ങൾ കുറഞ്ഞത് രണ്ട് റാലികളും ചെറിയ സംസ്ഥാനങ്ങൾ ഒരു റാലിയും നടത്തണമെന്ന് ബിജെപി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് സംസ്ഥാന പാർട്ടി ഘടകങ്ങളോട് നിർദ്ദേശിച്ചു

ലോക ത്തെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായ ശ്രീ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനാഭിലാഷം യാഥാർത്ഥ്യ മാക്കിയാണ് ഭരണം നടത്തുന്നതെന്ന് ശ്രീ

ആത്മനിർഭർ ഭാരത് സാക്ഷാത്കരിക്കാന്റുള്ള് നടപടികൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി എഴുതിയ കത്ത് വിതൃർണ്ണും ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

അടുത്തമിട്സം എട്ടുവരെ നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ രാജ്യത്ത് എത്തിച്ചേരും

എ ഇ യിൽ നിന്നാണ് കൂടുതൽ വിമാനങ്ങൾ എത്തിച്ചേരുന്നത് അധിക സർവ്വീസുകളും കേരളത്തി ലേക്കാണ്

മുൻ നിശ്ചയത്തിന് പ്രിപരീതമായി ചില വിമാന സർവ്വീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്

ഇന്നലെ എത്തിയ വിമാനത്തിൽ ഏഴ് ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്

സംഘത്തിൽ ആർക്കും കോവിഡ് ലക്ഷണങ്ങളില്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ള മലപ്പുറം സ്വദേശിനിയെ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഡൽഹി ചെന്നൈ ബംഗളുരു മധുര കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് തലസ്ഥാനത്ത് എത്തിയത് ഈ വിമാനങ്ങൾ ഇന്നലെതന്നെ മടങ്ങിപ്പോയി യാത്രക്കാരെ വിമാനത്താവളത്തിൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി വീട്ടിൽ നിരീക്ഷണത്തിന് അയച്ചു രണ്ട് പേരെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി

ചെറുകിട ബിസിനസ്സുകാർക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നതിന് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ പ്രക്മ്പനികൾ ആരംഭിക്കാനാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞ് പൂചറുകിട ഇടത്തരം സംരംഭങ്ങളെ കോവിഡ് എങ്ങനെ ബാധിച്ചു് എന്നതിനെപ്പറ്റി കൽക്കട്ട ചേംബർ ഓഫ് കൊമേഴ്സുമായി ചർച്ച നട്ത്തുകയായിരുന്നു ശ്രീ

ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ ഒരു ലക്ഷത്തോട് അടുക്കുകയാണ്

ലോക്ഡൌണിനെ തുടർന്ന് കൂടുങ്ങിപ്പോയവരെ നാട്ടിലെത്തിക്കാൻ മേയ് ഒന്നിനാണ് ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകൾ ആരംഭിച്ചത്

തുട്ർണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു

കണ്ണൂർ ജില്ലയിലെ രണ്ട് റിമാന്റ് തടവുകാർ ഉൾപ്പെടെ ആറ് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്

കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരേയും എം

എ മാരേയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്

പൊതുജനങ്ങൾ സ്വയം മനസി ലാക്കി സഹകരിക്കേണ്ട ഘട്ടമാണിതെന്നും മന്ത്രി പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു

എസ് എൽ

എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ് കൃഴുതാനുള്ള അവസരം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസവകുപ്പ് അധ്യാപ്പിക്കർക്ക് നിർദേശം നൽകിയിട്ടുണ്ട്

എസ് എൽ സി പ്തസ്ടു ് പരീക്ഷ എഴുതുന്ന സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാസ്കുകളും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പരീക്ഷാ മാർഗനിർദ്ദേശങ്ങളുമടങ്ങിയ ലഘുലേഖയും വീട്ടിലെത്തിച്ചു

സി പ്ലസ്ടു പരീക്ഷകൾക്ക് കുട്ടികളെ എത്തിക്കുന്ന വാഹനങ്ങളുടെ സഞ്ചാരം തടസപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിക്ക ണമെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി

മാർച്ചിൽ വിളവെടുപ്പ് തുടങ്ങി ഏപ്രിൽ ആദ്യവാരമാണ് സംഭരണം ആരംഭിച്ചത്

വീഡിയോ കോളിലൂടെ പ്രതികളെ ഹാജരാക്കിയാൽ മതി